മേധാവികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും

ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട ന് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും

നൈറ്റ് റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബുമായി ഏറ്റുമുട്ടം

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

തൂടർന്നുള്ള വർഷങ്ങളിൽ പ്രധാനമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിന് കൂടുതൽ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എത്തി

പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിനാൽ പരിപാടിക്ക് വലിയ പ്രാധാന്യമാണ് കൽപിക്കുന്നത്

വീഡിയോ കോൺഫറൻസിലൂടെ നടക്കുന്ന ചർച്ച സംഘടിപ്പിക്കുന്നതിൽ നിതി ആയോഗിനൊപ്പം എണ്ണ പ്രകൃതി വാതക മന്ത്രാലയവും ഭാഗമാക്കാണ്

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് നാവിക സേനാ മേധാവി അഡ്മിറൽ കരംബീർ സിങ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർകെഎസ് ബദൌരിയ എന്നിവർ നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കിഴക്കൻ ലഡാക്ക് ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ രാജ്യം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളി കമാൻഡർമാരുടെ സമ്മേളനം സമഗ്രമായി ചർച്ചചെയ്യും

എന്നാൽ തുർക്കിയുടേത് അനധികൃത നീക്കമെന്നാണ് ഗ്രീസിന്റെ വാദം

ഇത്തവണ കോവിഡ് പ്രോട്ടോക്കോൾ പ്പാലിച്ചാകും വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുക

ആൾക്കൂട്ടം ഒഴിവാക്കാനായി ക്ഷേത്രങ്ങളിൽ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ എഴുത്തിനിരുത്തുകയുള്ളൂ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇപ്രാവശ്യം വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നില്ല

കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല

ദേവത പ്രതിമകൾ നദികളിൽ ഒഴുക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമാകുക

മഹേഷ് കനോഡിയയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു

വൈറസിന്റെ രണ്ടാം വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്പെയിൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

ബൾഗേറിയയിൽ പ്രധാനമന്ത്രി ബോയ്കോ ബോറിസോവിന് കോവിഡ് സ്ഥിരീകരിച്ചു

അതേസമയം മലേഷ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അൽ സുൽത്താൻ അബ്ബുള്ള രാജാവിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി മുഹിയൂദ്ദീൻ യാസിൻ തള്ളിക്കളഞ്ഞു മാസ്ക് ധരിക്കാത്തവരെ ഓഫീസുകളിൽ പ്രവേശിപ്പിക്കേണ്ടെന്നും സർക്കാർ സേവനങ്ങൾ നൽകേണ്ടെന്നും ബംഗ്ലാദേശ് തീരുമാനിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ രീജസ്ഥാൻ റോയൽസ് എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു

സൂക്ഷിക്കണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതായും ശ്രീ സഞ്ജയ് റൌത് പറഞ്ഞു ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചരൃത്തിലാണ് ശിവസേന നേതാവ് ഇങ്ങനെ പറഞ്ഞത് കോവിഡ് കാലത്ത് വീട്ടിൽ തന്നെ തങ്ങുന്ന മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെയെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് ശ്രീ സഞ്ജയ് റൌത്തിന്റെ പ്രതികരണം

മാവോയിസ്റ്റുകളെ മുഖ്യധാരയ്യില്ല്ക്ക് മടക്കിയെത്തിക്കാൻ പോലീസ് ആരംഭിച്ച ലോൺ വീരുതു കാമ്പൃയിന്റെ ഭാഗമായാണ് ഇവർ കീഴടങ്ങിയതെന്ന് ദിന്തേവാഡ എസ് പി അഭിഷേക് പല്ലവ പറഞ്ഞു

ജെ പി അധൃക്ഷൻ കെ സുരേന്ദ്രനും ഇന്ന് ഇൌ രണ്ടു സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും